പാരമ്പര്യ അറിവുകൾ സാങ്കേതിക പ്രയോജനപ്പെടുത്തി ഗ്രാമീണ കാർഷിക മേഖലയിൽ നേട്ടമുണ്ടാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കോവിഡ് വാക്സ്മീൻ ഗവേഷണത്തിൽ ഇന്ത്യക്ക് മുന്നേറ്റം

നഗരങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് കൊൽക്കത്തയിൽ നിരോധനം

മെഡിക്കൽ വിദ്യാഭ്യാസരംഗത്ത് സംസ്ഥാന കേന്ദ്രീകൃത മായ ഒ ബി സി സംവരണം ഏർപ്പെടുത്ത ണമെന്ന് കേന്ദ്ര സർക്കാർ

രാജ്യത്തെ കാർഷിക ഗവേഷണ ്ട്രമേഖലയിലെ പുരോഗതി വീഡിയോ കോൺഫറൻസിലൂടെ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം യുവാക്കളുടെയും കാർഷിക ബിരുദധാരികളുടെയും പ്രാവീണ്യം ഇതിനായി പ്രയോജനപ്പെടുത്തണം കർഷകരുടെ ആവശ്യത്തിന് അനുവദിച്ചിട്ടുള്ള ഗവേഷണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി

ആത്മനിർഭർ ഇന്നവേഷൻ ചലഞ്ച് എന്ന പേരിലുള്ള പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തുടക്കമിട്ടത് സാങ്കേതിക വിദഗ്ധരോട് പരിപാടിയിൽ സജീവമായി സഹകരിക്കണമെന്ന് പ്രധാനമന്ത്രി അഭൃർത്ഥിച്ചു നിലവിലെ ആപ്പിക്കേഷനുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനൊപ്പം നൂതന ആപ്പുകൾ വികസിപ്പിക്കുന്നതിനും പദ്ധതിയുണ്ട് ഇ ലേണിംഗ് വർക്ക് ഹോം ഗെയിമുകൾ വ്യാപാരം വിനോദം ഓഫീസ് ആവശ്യ സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവയ്ക്കുവേണ്ടിയുള്ള ആപ്പിക്കേഷനുകൾ വികസിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ബി ജെ പി ്യുടെ സേവാ ഹി സംഗതൻ അഭിയാൻ പരിപാടി വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വോട്ടിനുവേണ്ടിയുള്ള രാഷ്ട്രീയം എന്നതിലുപരി ജനങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കാൻ ബി ജെ പി പ്രവർത്തകർ തയ്യാറാകണം

മറ്റെല്ലാം അതു കഴിഞ്ഞ വരുന്നുള്ളൂ എന്നും നരേന്ദ്രമോദി പറഞ്ഞു

സർക്കാർ ഏജൻസികൾ സ്വകാര്യ മേഖലയുടെ സഹകരണത്തോടെയാണ് പ്രതിരോധമരുന്ന് വികസിപ്പിക്കുന്നത് ഭാരത് ബയോടെക്കിനും സൈഡെസ്കയ്ക്കും രണ്ടുഘട്ടമായി മനുഷ്യരിൽ മരുന്നു പരീക്ഷണത്തിനുള്ള അനുമതി കേന്ദ്ര ഡ്രഗ്സ് കൺട്രോളർ അനുമതി നൽകിയിട്ടുണ്ട് മാറുമായി ചേർന്നാണ് പ്രവർത്തനങ്ങൾ ഐ

ആർ നടക്കുന്നത്

സി

സുരക്ഷ ഗുണനിലവാരം വൈദ്യശാസ്ത്ര നൈതികത എന്നിവ ഉറപ്പാകുമെന്ന് ഐ

എം ആർ അറിയിച്ചു

വിശദാംശങ്ങളുമായി ആകാശവാണി തിരുച്ചിറപ്പള്ളി വാർത്താ വിഭാഗം മേധാവി ഡോ

നിയമസഭാ സ്പീക്കർ വിജയ്കുമാർ ചൌധരി മുഖ്യമന്ത്രി നിത്രീഷ്കുമാർ ഉപമുഖ്യമന്ത്രി സുശീൽകുമാർ എന്നിവരും കോവിഡ് പരി്ശോധനക്ക് വിധേയരായി

കോവിഡ് സ്ഥിരീകരിച്ചു

പൊലീസുകാരന്റെ വീട്ടുകാർക്കോ എ

കൃാംപിലെ മറ്റു പൊലീസുകാർക്കോ ഇതുവരെ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല

ജില്ലയിൽ രോഗ വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിദേശത്തു നിന്ന് എത്തുന്ന എല്ലാവർക്കും ആന്റിജൻ പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്

ഡൽഹി ചെന്നൈ മുംബൈ നാഗ്പൂർ പൂനെ അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്കാണ് നിരോധനം

ഇത് സംബന്ധിച്ച് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയത്തിന് നിവേദനം നൽകിയിരുന്നു

ഒ ബി സി സംവരണം നീട്ടണമെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റിന് മറുപടിയായാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം

അമേരിക്ക ഇന്ത്യയെ സ്നേഹിക്കുന്നവെന്ന് ട്രംപ് ട്വീറ്റ് ചെയ്തു

ഭാവിയിൽ ചൈനയുമായി ഒരു വ്യാപാര ബന്ധവും ഉണ്ടാക്കില്ലെന്ന് കമ്പനി ചെയർമാൻ പങ്കജ് മുൻജൽ പറഞ്ഞു

കോവിഡ് മഹാമാരിയെത്തുടർന്ന് നികുതിദായകർക്കുണ്ടായ ബുദ്ധിമുട്ട് പരിഗണിച്ചാണിത്

ലഘു ഉദ്ദ്യോഗ് ഭാരതിയുടെയും സഹകാർ ഭാരതിയുടെയും യോഗത്ത് വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുക്യായിരുന്നു മന്ത്രി